ഉച്ചകഴിഞ്ഞ് മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രഖ്യാപനം നടത്തും തിരുവനന്ത പുരം ജില്ലാ ലൈഫ് ഗുണഭോക്തൃ സംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനും ജനപ്രതിനിധികളും വകുപ്പുതല ഉദ്യോഗ സ്ഥരും പങ്കെടുക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട പിന്നാക്ക ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്തി പ്രവർത്തിക്കുകയെന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും ഈ വിഭാഗങ്ങളെ സമൂഹ ത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കേരളം നടത്തിവരുന്ന ശ്രമങ്ങൾ മികച്ചതാണന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ രജത ജൂബിലി പാലക്കാട്ട് ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോർപ്പറേഷന്റെ വനിതാ വായ്പാ പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ സംഭാവനയാണ് നൽകുന്ന തെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു

മികച്ച ശുചിത്വ പരിപാലനവും അണുബാധ നിയന്ത്രണവും നടത്തുന്ന ഗവൺമെന്റ് ആശു പത്രികൾക്കാണ് അവാർഡ് നൽകുന്നത് ജില്ലാ ആശുപത്രികളിൽ പൊന്നാ നിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്കാണ് ഒന്നാംസ്ഥാ നം കോഴിക്കോട് ജനറൽ ആശുപത്രിക്ക് രണ്ടാംസ്ഥാനം ലഭിച്ചു

കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ് കാർട്ടേഴ്സ് ആശുപത്രിയും താമരശേരി താലൂക്ക് ഹെഡ് കാർട്ടേഴ്സ് ആശുപത്രിയും രണ്ടാംസ്ഥാനം പങ്കുവെച്ചു അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ വിഭാഗത്തിൽ കോട്ടയത്തെ വെള്ളൂർ തൃശൂരിലെ ആനപ്പുഴ കോഴിക്കോട്ടെ കല്ലുനിറ സെന്ററുകൾ ജേതാക്കളായി

എറ ണാകുളം ജനറൽ ആശുപത്രിയിൽ നടപ്പാക്കിയ ഓൺലൈൻ ഇ ഹെൽത്ത് സൊല്യൂഷൻ പദ്ധതിക്കാണ് അവാർഡ് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട രാത്രിയിൽ വാഹനമോടിക്കുന്ന ട്രക്ക് ഡ്രൈവർമാരടക്കം ചിലർ ഉറക്കം വരാതിരിക്കാൻ ലഹരി ഗുളികകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടു ണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു ഇത് കണ്ടുപിടി ക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ വൈകാതെ പൊലീസിന് ലഭ്യമാക്കും

കർണാടക വനംവകുപ്പിനെയാണ് ഇതിൽ കുറ്റപ്പെടുത്തുന്നതെ ങ്കിലും സംസ്ഥാന വനംവകുപ്പും പദ്ധതിയോട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു അയ്യൻകുന്ന് പായം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കൂട്ടുപുഴയ്ക്ക് കുറുകെ കച്ചേരിക്കടവിൽ നിർമ്മിച്ച പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജനങ്ങ ളുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സുതാ രൃത ആവശ്യമാണെന്നും അഴിമതിരഹിത നടപടികളാണ് ജനങ്ങളുടെ ആവ ശ്യമെന്നും കൂട്ടുമുഖം പൂവ്വം റോഡ് വികസന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി അഭിപ്രായപ്പെട്ടു

വ്യാഴാഴ്ച രാത്രിയും ഇടുക്കി ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു രുട്ട്ട്ട്ട്ട്ട്ട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് പാലക്കാട് ജില്ല യിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ പട്ടാമ്പിയിൽ പ്രധാന മന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ നിർമിച്ച വീടുകൾ അദ്ദേഹം ഉദ്ഘാട നം ചെയ്യും ഉച്ചയ്ക്ക് പാലക്കാട്ട് നെഹ്റു യുവകേന്ദ്രയുടെ സ്പോർട്സ് കി റ്റ് വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി വൈകീട്ട് പാലക്കാ ട് നഗരസഭയിലെ അമൃത് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഏതാനും പദ്ധ തികൾക്കും വി മുരളീധരൻ തറക്കല്പിടും

കോഴിക്കോട് കണ്ണൂർആലപ്പുഴ ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർധിച്ചേക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു

രുട്ട്ട്ട്ട്ട്ട്ട്ട ക്രൈസ്റ്റ് ചർച്ചിൽ ഇന്ത്യ ന്യൂസിലന്റ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റ് നഷ്ടമായി

പൃഥ്വി ഷാ മായങ്ക് അഗർവാൾ എന്നിവരുടെ വിക്ക റ്റുകളാണ് നഷ്ടമായത്

നിലവിൽ മിനർവ പഞ്ചാബ് രണ്ടാംസ്ഥാനത്തും ഗോകുലം കേരള ഏഴാംസ്ഥാനത്തുമാണ്

കേരള പൊലീസ് ടീമിനെയാണ് അവർ തോൽപ്പിച്ചത്

എസ് എൽ ഫുട്ബോൾ ആറാം സീസണിലെ സെമിഫൈനൽ മൽ സരങ്ങൾ ഇന്ന് തൂടങ്ങും

സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും രദ്ദേഷ്ടങ പതിനെട്ടാമത് അസീസ് മെമ്മോറിയൽ അഖില കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് മത്സരം ഇന്നും നാളെയും കോഴിക്കോട് കൊളത്തറ അന്ധവിദ്യാലയത്തിൽ നടക്കും ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് കേരളയും കൊള ത്തറ അന്ധവിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്

കുന്നംകുളം നഗരസഭയിൽ ജില്ലയിലെ ആദ്യ വിശപ്പുരഹിത കാന്റീൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കെ ശൈലജ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പരിപാടി കളിൽ പങ്കെടുക്കും രാവിലെ ആരോഗൃ ജാഗ്രതാ പദ്ധതിയുടെ കോർപ്പറേ ഷൻതല ഉദ്ഘാടനം ആർദ്രം പദ്ധതി പ്രഖ്യാപനം ആശാ പ്രവർത്തകരുടെ കോർപ്പറേഷൻതല നിയമനം ശുചീകരണ തൊഴിലാളികളുടെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം എന്നീ ചടങ്ങുകളിൽ മന്ത്രി പങ്കെടുക്കും ദർശ്ശേര ഓൺലൈൻ വിപണനരംഗത്തും കുടുംബശ്രീ ഉത്പന്നങ്ങളെ സജീവ മാക്കുമെന്ന് മന്ത്രി എ

വിപണനരംഗത്തെ പ്രതിസന്ധി മറികടക്കാൻ ഇത് സഹായകമാവുമെന്ന് അദ്ദേഹം പറഞ്ഞു കോലഞ്ചേരിയിൽ കുടും ബശ്രീ ആരംഭിച്ച സൂപ്പർ ബസാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് വൈകീട്ട് ജന്മനാ ടായ കോഴിക്കോട് ഉള്ള്യേരിയിൽ സ്വീകരണം നൽകും മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ മാറാട് കട പ്പുറത്ത് ബലിദാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന പരിപാടിയിലും സുരേ ന്ദ്രൻ പങ്കെടുക്കും

രദേഷ്ടെടു കൊല്ലം നെടുമ്പന ഇളവൂരിൽ ഇത്തിക്കരയാറിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ആറുവയസ്സുകാരി ദേവനന്ദയുടെ മൃതദേഹം പൂയപ്പള്ളി കുട വട്ടൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു

കിടങ്ങൂർ സൌത്ത് പൂ വത്താനത്ത് സാജു കൊങ്ങാണ്ടൂർ മഴുവാഞ്ചേരിക്കാലായിൽ ജോയി തോ മസ് എന്നിവരാണ് മരിച്ചത്